ക്രിമിനൽ ഗൂഢാലോചന കലാപ്പർ ഗ്ന്യമവിരുദ്ധമായി സംഘം ചേരൽ എന്നിവയുൾപ്പെടെ ഐപീസിയിലെ നിരവധി വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നുത്

ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ലെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നും സംഭവിച്ചതാണെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം

അത്തരം വ്യക്തികളും കുറ്റാരോപിതരും തമ്മിൽ ബന്ധമില്ലെന്നും ജനക്കൂട്ടത്തെ സമാധാനിപ്പിക്കാനാണ് അവർ ശ്രമിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

വിചാരണക്കിടെ വിരമിച്ച സ്പെഷ്യൽ സിബിഐ ജഡ്ജി സുരേന്ദ്ര കുമാർ യാദവിൻറെ കാലാവധി വ്വിധി പ്രസ്താവിക്കും വരെ നീട്ടി

നീതി ഒരിക്കലും അവഗണിക്കാനാകില്ല എന്നതിന്റെ തെളിവാണ് ഈ വിധിയെന്നും അദ്ദേഹം ട്വീറ്ററിൽ പറഞ്ഞു

ജെ

രാമജന്മഭൂമി പ്രസ്ഥാനത്തോടുള്ള ബി ജെ

ജെ പി മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയും കോടതിവിധിയെ സ്വാഗതം ചെയ്തു

കേരളത്തിലെ ഏറ്റവും ഉയർന്ന പരിശോധനയാണിത്

സ്കൂൾ വീണ്ടും തുറന്നതും കായിക വിനോദങ്ങളും മത്സരങ്ങളും പുനരാരംഭിച്ചതും ഇതിനു കാരണമായെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു

കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഹിച്ച നിർണായക പങ്കിനെ അദ്ദേഹം പ്രശംസിച്ചു ഇത്തരം കേന്ദ്രങ്ങളുടെ കാര്യക്ഷമത വിറ്റുവരവ് ലാഭം എന്നിവയ്ക്ക് സർക്കാർ ഉൌന്നൽ നൽകുന്നുവെന്നും മന്ത്രി പറഞ്ഞു

തദ്ദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഇത്

ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലിന്റെ വിജയം ആത്മ നിർഭർ ഭാരതിന് പ്രോത്സാഹനമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷയ്ക്ക് ഹാജരാകാൻ കഴിയാത്തവർക്ക് ഒരു അവസരം കൂടി നൽകാനും കേന്ദ്രത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു

തുടർച്ചയായ മഴയും കോവിഡും പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചതിനാൽ മൂന്നു മാസത്തേക്ക് പരീക്ഷ മാറ്റണമെന്ന ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ്

ഏകദേശം ഏപ്രിൽ ഒന്ന് മുതൽ ആറ് മാസത്തെ കാലയളവിലാണ് ഇത്രയും തുക അനുവദിച്ചത്

ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്

കിഴക്കൻ ഏഷ്യ വിഭാഗം ജോയിന്റ് സെക്രട്ടറി നവീൻ ശ്രീവാസ്തവയ്ക്കാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്

എസ് ഡോളറിന് തുല്യമാണ് ഇത്

നിതി ആയോഗ് മേധാവി അമിതാഭ് കാന്തും നെതർലാൻഡ്സ് അംബാസഡർ മാർട്ടൻ വാൻ ഡെൻ ബെർഗുമാണ് സഹകരണ കരാറിൽ ഒപ്പുവച്ചത്